ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന

നികുതി സംവിധാനത്തെ രൂപീപ്പെട്ടുത്താൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ധാരണ്യിലെത്തി

ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ വിദേശകാരൃ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്

നേരെ മിസൈൽ ആക്രമണം

ഫെബ്രുവരി ആദ്യവാരത്തിൽ ബജറ്റ് അവതരിപ്പിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്

മറ്റ് നിരവധി പരിഷ്കാര നടപടികളും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന രണ്ടാമത് ദേശീയ ജി

സംസ്ഥാനനികുതി കമ്മീഷണർമാരും കേന്ദ്ര നികുതി ചീഫ് കമ്മീഷണർമാരും പങ്കെടുത്തു റവന്യൂ സെക്രട്ടറി ഡോ അജയ് ഭൂഷൺ പാണ്ഡെ അധ്യക്ഷനായി നികുതി വെട്ടിപ്പ് തടയാനും വരുമാനം വർധിപ്പിക്കാനും വിവിധ ഏജൻസികൾ തമ്മിലുള്ള വിവര കൈമാറ്റവും സഹകരണവും മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു

ടി വെട്ടിപ്പും വ്യാജ റീ ഫണ്ട് അപേക്ഷകളും കണ്ടെത്താനുള്ള നടപടികൾക്കായി കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ അടങ്ങിയ സമിതി രൂപീകൃതിക്കാനും തീരുമാനിച്ചു

ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ജസ്റ്റിസമാരായ ബി ആർ ഗവായി സൂര്യകാന്ത് എന്നിവരടങ്ങുന്ന ബെഞ്ച് ഹർജിയിൽ വെള്ളിയാഴ്ച വാദം കേൾക്കും

ജെ

അധ്യക്ഷനുമായ അമിത് ഷാ പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതവും പ്രവർത്തനവും ആധാരമാക്കിയ കർമ്മയോദ്ധ ഗ്രന്ഥ് എന്ന പുസ്തകം ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃഷി ആരോഗൃ സുരക്ഷ വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിൽ പരിഷ്കരണം കൊണ്ടുവരാൻ എൻ

എ ഗവൺമെന്റിന് സാധിച്ചു

ഇറാഖിൽ ജീവിക്കുന്ന ഇന്ത്യൻ പൌരൻമാരോട് രാജ്യത്തിനുള്ളിലെ യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും മന്ത്രാലയം അറിയിപ്പ് നൽകി ബാഗ്ദാദിലുള്ള ഇന്ത്യൻ എംബസിയും എർബിലിലെ കോൺസുലേറ്റും സാധാരണ രീതിയിൽ പ്രവർത്തിക്കും

എല്ലാം നല്ലതിന് എന്നായിരുന്നു ആക്രമണത്തിനു ശേഷം ട്രംപ് ടിറ്ററിലൂടെ നടത്തിയ ആദ്യ പ്രതികരണം കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത വോയിസ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പർ തുടങ്ങിയവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് യുഎസ് പ്രസിഡന്റ് തന്റെ പ്രതികരണം ടിറ്ററിൽ അറിയിച്ചത് ഇറാഖിലെ രണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇന്നലെ രാത്രിയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതെന്ന് പെന്റുഗൺ അറിയിച്ചു

ഇറാക്കിലെയും ഇറാനില്ലെയും നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണ്ണ്ൾഡ് ട്രംപും ഖത്തർ അമീർ ഷെയ്ക് തമീം ബിൻ ഹമ്മദ് അൽ താനിയുമായി ചർച്ച ചെയ്തതായി വൈറ്റ് ഹൌസ് അറിയിച്ചു ജർമ്മൻ ചാൻസിലർ എയ്ഞ്ചല മെർക്കലുമായും വിഷയം യു എസ് പ്രസിഡന്റ് ടെലഫോണിലൂടെ ചർച്ചു ചെയ്തിട്ടുണ്ട് അതേ സമയം പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്ക് കാരണം ട്രംപ് ആണെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി ആരോപിച്ചു ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്നുളള പിൻമാറ്റം സൊലൈമാനിയുടെ മരണത്തിനിടയാക്കിയ വ്യോമാക്രമണം തുടങ്ങിയവ സംബന്ധിച്ച് ട്രംപ് കൈക്കൊണ്ട തീരുമാനങ്ങളാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് യു എസ് മുൻവൈസ് പ്രസിഡന്റ് ജോ ബൈഡൻ കുറ്റപ്പെടുത്തി

എല്ലാവരും കൊല്ലപ്പെട്ടതായാണ് സൂചന

ഇമാം ഖൊമേനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടയുടൻ വിമാനത്തിന്റെ എഞ്ചിനുകളിൽ ഒന്നിൽ തീ പിടിക്കുകയായിരുന്നു ഇറാക്കിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് വിമാന അപകടം ഉണ്ടായത്

ഇറാഖിലെ യു എസ് സൈനിക ആസ്ഥാനങ്ങൾക്ക് ന്റെരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണമാണ് ക്രൂഡ് ഓയിൽ പില് ഉയരാൻ കാരണം

പോക്സോ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോയെന്ന് ഉറപ്പു വരുത്താൻ ആഭൃന്തര വകുപ്പിന് അദ്ദേഹം നിർദ്ദേശം നൽകി

കേന്ദ്ര വിദേശകാരൃമന്ത്രി ഡോ എസ് ജയ്ശങ്കറുമായി അദ്ദേഹം നാളെ ഉഭയുകക്ഷി ചർച്ച നടത്തും സാമ്പത്തിക മേഖലയിലെ വിവിധ പദ്ധരി്കൾ ഇന്ത്യൻ കമ്പനികളുടെ നിക്ഷേപം മത്സ്യത്തൊഴിലാളികളുടെ പ്രിശ്നങ്ങൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സ്ഥിരത തുടങ്ങിയ് വൃഷയങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്യും

ഹിമപാതത്തിന് കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഈ മേഖലയിലാണുള്ളത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധ ഭൂമിയായ സിയാച്ചിനിലെ സൈനികർക്കും ഹിമപാത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏത് അടിയന്തര സാഹചരൃം നേരിടാനുള്ള മുൻകരുതൽ കൈക്കൊള്ളാൻ ലേ ജില്ലാ ഭരണകൂടം വിവിധ വകുപ്പുകൾക്കും ഏജൻസികൾക്കും നിർദ്ദേശം നൽകി

ഉയ്ക്ക്ൻ ്പ്രദേശങ്ങളിലും ആദിവാസി മേഖലകളിലും കനത്ത ൃ ൃശ്ശെത്യമാണ് അനുഭവപ്പെടുന്നത് ഉത്തർപ്രദേശിൽ ചില സമ്പ്രങ്ങ്ളിൽ ഇടിയോടു കൂടിയ മഴ പെയ്തത് സംസ്ഥാനത്താകെ ശീത്ത്രംഗം സൃഷ്ടിച്ചു

ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻ പി

സിന്ധു വനിതാ സിംഗിൾസിൽ റഷ്യയുടെ ഇവ്ജെനിയയെ നേരിടുമ്പോൾ സൈന നെഹ്വാൾ ബെൽജിയത്തിന്റെ ലിയാനേ താനുമായി ഏറ്റുമുട്ടും പുരുഷ സിംഗിൾസിൽ ഡെൻമാർക്ക് താരം റാസ്മൻ ജെംകെ ഇന്ത്യയുടെ സായിപ്രണീതിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി

കശ്യപ് കിഡംബ്ലി ശ്രീകാന്ത് സമീർ വർമ്മ എച്ച്